വനിതാ സംവരണ ബില്ലിൽ അഭിപ്രായ സമന്വയം വേണമെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു

നെതർലന്റ്സിനെ പരാജയപ്പെടുത്തിയത് സഡ്ൻഡെത്തിൽ

രാവിലെ ജയ്പൂരിലെ ചരിത്രസ്മാരകമായ ആൽബർട്ട് മെമ്മോറിയൽ മ്യൂസിയം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ കല്യാൺസിങ് ഗഹ്ലോട്ടിനും ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റിനും സത്യവാചകം ചൊല്ലിക്കൊടുക്കും

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിങ് ലോക്സഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും മറ്റ് സുഹൃദ് പാർട്ടി നേതാക്കളെയും സത്യപ്രതിജ്ഞ ചടങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട്

ചിന്ദ്വാര മണ്ഡലത്തിൽ നിന്ന് ഒമ്പത് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കമൽനാഥ് അവസാനവട്ട പിരിമുറുക്കങ്ങൾക്കൊടുവിലാണ് നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്

പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുമായും പാർട്ടി എം

എ മാരുമായും നടന്ന നാല് ദിവസത്തെ മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് എ ഐ സി സി നിരീക്ഷകനായ മല്ലികാർജ്ജുന ഖാർഗെ ഇന്നലെ ബാഗേലിന്റെ പേര് നിർദ്ദേശിച്ചത് സംഘടനാ പാടവം തെളിയിച്ച പരിചയ സമ്പന്നനായ നേതാവാണ് ശ്രീ

കോൺഗ്രസ് അധ്യക്ഷൻ പ്ര്യഹൂൽ ഗാന്ധി യു

എ അധ്യക്ഷ സോണിയ ഗാന്ധി മുൻ പ്പ്യൻനമന്ത്രി മൻമോഹൻ സിംഗ് തുടങ്ങിയവർ പങ്കെടുക്കും

ഇന്നലെ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലെ അന്റാവയിലെ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

അടിസ്ഥാന സൌകര്യ വികസനം തീർത്ഥാടന സൌകര്യ വികസനം ഗതാഗതം മാലിന്യ സംസ്കരണം തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് വികസന പദ്ധതികൾ കുംഭമേളയമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു ഗംഗാ ശുചീകരണ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ബാമ്റൌലി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഇന്നലെ ഉത്തർപ്രദേശിലെ റായ്ബെറേലിയിൽ ആയിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിരുന്നു

ന്യൂസ് ഡെസ്ക് ആകാശ്വാണി

ത്രിദിന സന്ദർശനത്തിനായി ഇന്നലെയാണ് അദ്ദേഹം ന്യൂഡൽഹിയിൽ എത്തിയത് ഇരു രാജ്യങ്ങളും വിവിധ കരാറുകളിൽ ഒപ്പുവയ്ക്കും

ദ്വീപിലെ പ്രവാസികളുടെ എണ്ണത്തിൽ ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത്

വെങ്കയ്യ നായിഡു എല്ലാ രാഷ്ട്രീയ കക്ഷികളോടൂം ആവശ്യപ്പെട്ടു ലോക്സഭയിലും നിയമസഭകളിലും വനിത സംവരണം ഉറപ്പാക്കുന്ന ബില്ലാണിത് ന്യൂഡൽഹിയിൽ നിതി അയോഗ് സംഘടിപ്പിച്ച സ്ത്രീ ശാക്തീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സീറ്റുകളിലെ മ്മനിത പ്രാതിനിധ്യം വിജയകരമാണെന്നതും ശ്രീ നായിഡു ഔർമ്മിപ്പിച്ചു തൊഴിൽ വേതനം തുടങ്ങി ഒരു വിഷയത്തിലും സ്ത്രീകളോടു വിവേചനമരുതെന്നും ശ്രീ വെങ്കയ്യ നായിഡു പറഞ്ഞു

രാജ്യത്തെ സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക വികസനത്തെ കുറിച്ച് ജമ്മു കാശ്മീരിലെ യുവാക്കളിലും കുട്ടികളിലും അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തരവകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് വതൻ കോ ജാനോ ദേശത്തെ അറിയൂ

സമുഹത്തിന്റെ താഴെക്കിടയിലുള്ള കുട്ടികളെയും തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ദൂഷ്യഫലം അനുഭവിക്കുന്ന യുവാക്കളെയുമാണ് പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത്

മത്സ്യത്തൊഴിലാളികൾ കടലിൽ ക്ടോകരു്തെന്നും മുന്നറിയിപ്പിൽ പറയുന്നു

ദ്ധീപിലെ കാലാവസ്ഥ മോശമാകുകയും കടൽ പ്രക്ഷുബ്ദമാവുകയും ചെയ്ത സാഹചരൃത്തിലാണിത് ഈ വിനോദസഞ്ചാരികളുടെ എയർ ടിക്കറ്റിന്റെ കാൻസലേഷൻ ചാർജ് ഉൾപ്പെടെ ഉപേക്ഷിക്കണമെന്ന് ടുറിസം സെക്രട്ടറി ആവശ്യപ്പെട്ട് യശ്പാൽ ഗാർഗ് വ്യോമ മേഖലയിലെ വിവിധ കമ്പനികൾക്ക് കത്തയച്ചിട്ടുണ്ട്

ഈ സ്ഥിതിവിശേഷം തുടർന്നാൽ സംസ്ഥാനത്ത് ഭീകരമായ അന്തരീക്ഷ മലിനീകരണത്തിന് ഇത് വഴിവയ്ക്കും വിള അവശിഷ്ടം കൂട്ടമായി കത്തിക്കുന്നതിന്റെ പ്രത്യാഘാതം സംബന്ധിച്ച് കർഷകർക്കു ബോധവൽക്കരണം നൽകാൻ സംസ്ഥാനത്തെ വനിതാ സ്വയം സഹായക സംഘങ്ങളായ ജീവിക ദീദിസിന്റെ സഹായം തേടാനും അദ്ദേഹം ഉദ്യോഗസ്ഥർക്കു നിർദ്ദേശം നൽകി

ഖത്തർ ഊർജ വകുപ്പ് മന്ത്രിയും ഖത്തർ പ്പെട്ടോളിയം സി ഇ

ആവേശകരമായ നിർണായക മത്സരത്തിൽ നെതർലന്റ്സിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബെൽജിയം ലോകകപ്പ് സ്വന്തമാക്കിയത് ലൂസേഴ്സ് ഫൈനലിൽ ഒന്നിനെതിരെ എട്ട് ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ മൂന്നാം സ്ഥാനത്തെത്തി